പാകിസ്ഥാൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ കാശ്മീർ സെൽ എന്ന പേരിൽ പ്രത്യേക വിഭാഗം ആരംഭിച്ചതിനെതിരെ ലോകരാജൃങ്ങളുടെ നടപടി ആവശ്യപ്പെട്ട് ഇന്ത്യ

ലോക്സഭയിൽ രേഖാമൂലം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിൽ വിദേശകാരൃസഹമന്ത്രി വി

പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പാകിസ്ഥാന്റെ കുത്സിത നീക്കം ഇത്തരം കാശ്മീർ സെല്ലുകൾ തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നത് അപകടം വിളിച്ചുവരുത്തുമെന്ന് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചതായി ശ്രീ

ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും വിഷയം രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യം മാത്രമാണെന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് അറിവുള്ളതാണെന്നും കേന്ദ്രസഹമന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി

ബിൽ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്നതാണെന്നും ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രിസഭായോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുളള ഹിന്ദു സിഖ് ബുദ്ധമതക്കാർ ജൈനമതക്കാർ ക്രിസ്ത്യാനികൾ പാർസികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നത് ലക്ഷ്യമിടുന്നതാണ് ബിൽ

നടപ്പു ശീതകാല സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കാനാണ് സാധ്യത

വിൽപ്പനാ കരാറുകൾ പവർ ഓഫ് അറ്റോർണി വിൽപ്പത്രങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉന്നയിക്കാവുന്നതാണ്

സംഭവത്തെ തുടർന്ന് കാണാതായ ഇന്ത്യാക്കാരുടെയും ആശുപത്രിയിൽ ചികിൽസയിലുള്ളവരുടെയും അപകടനില തരണം ചെയ്തവരുടെയും വിശദാംശങ്ങൾ സ്ഥാനപതി കാര്യാലയം പുറത്തുവിട്ടു ചികിൽസയിൽ കഴിയുന്ന ഏഴിൽ നാല് പേരുടെ നില ഗുരുതരമാണെന്നാണ് സൂചന

എക്സ് മീഡിയ അഴിമതി കേസിൽ ഉപാധികളോടെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ്സ് നേതാവുമായ പി

ചിദംബരം ന്യൂഡൽഹിയിലെ തിഹാർ ജയിലിൽ കഴിഞ്ഞത്

കിഴക്കൻ സിംഗ്ബം പടിഞ്ഞാറൻ സിംഗ്ബം സറയ്കേല ഖൂർസ്മവൻ റാഞ്ചി കുന്തി ഗുമ്ല സിംദേഗ ജില്ലകളിലാണ് വോട്ടെടുപ്പ് രൂടക്കുന്ന മണ്ഡലങ്ങൾ

ഡി എസിലെ മൂന്നും വിമത എം

എ മാരെ അയോഗ്യരാക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്

റായ്ചൂർ ജില്ലയിലെ മസ്കി ബംഗളുരു സൌത്ത് വെസ്റ്റിലെ ആർ ആർ നഗർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് റദ്ദാക്കിയത്

ഉള്ളിയുടെ വില വർദ്ധിക്കുന്നതിനിടെ പൊതുമേഖലാ വ്യാപാര സ്ഥാപനമായ എം

അയ്യായിരം ടൺ വീതം ഉള്ളി ഇറക്കുമതി ചെയ്യുന്നതിനായി മൂന്ന് ദർഘാസുകൾ കൂടി നൽകണമെന്ന് മന്ത്രാലയം എം

ഉള്ളിയുടെ ഇറക്കുമത്ലിയും വിതരണവും കാര്യക്ഷമമായി നടത്തുന്നതിന് ഏകോപന സ്ഥിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

ബാരാമുള്ള ജില്ലയിലെ ഷീരി പോലീസ് പ്രത്ശീലന കേന്ദ്രത്തിൽ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്നും ശ്രീ

വ്യക്തിഗത ഇനത്തിലും അന്നു സ്വർണ്ണം സ്വന്തമാക്കിയപ്പോൾ ഗൌരി വെള്ളിമെഡൽ കരസ്ഥമാക്കി ഖൊ ഖൊ യിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സ്വർണ്ണം കൊയ്തു ട്രയാത്ത് ലോണിലും തായ് കാണ്ടോയിലും ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ച് സ്വർണ്ണം നേടി ടേബിൾ ടെന്നീസ് പുരുഷ വനിതാ ഡബിൾസിൽ സ്വർണ്ണവും വെള്ളിയും ലഭിച്ചു ബാഡ്മിന്റണിൽ എട്ട് ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ പ്രവേശിച്ചു

ക്ട്രേരള്ത്തിന്റെ ശീതൾ ഷാജി അഞ്ജു സാബു നിസ്സി ലസ്സി തമ്പി അജ്സിമോൾ ബെന്നി പി

അനശ്വര എന്നിവർ ഇന്ന് മത്സരത്തിനിറങ്ങും

കൊൽക്കത്ത മെട്രോ റെയിലിൽ ആറ് വർഷത്തിനുശേഷമാണ് പുതുക്കിയ നിരക്ക് നിലവിൽ വരുന്നത്